മധ്യപ്രദേശിലും ഗുജറാത്തിലും അഞ്ചുപേർക്ക് വീതവും കർണ്ണാടകയിലും ഉത്തർപ്രദേശിലും നാല് പേർക്ക് വീതവും ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്

ഡോക്ടർമാർ പാരാ മെഡിക്കൽ ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകർ ശുചീകരണതൊഴിലാളികൾ ആശാ വർക്കർമാർ എന്നിവർക്ക് പരിരക്ഷ ലഭിക്കും

സംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ പി

മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വേതനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്

കണ്ണൂരിൽ ഒൻപത് പേർക്കും കാസർകോടും മലപ്പുറത്തും മൂന്നു പേർക്കും തൃശൂരിൽ രണ്ടു പേർക്കും ഇടുക്കിയിലും വയനാട്ടിലും ഓരോരുത്തർക്കു വീതവുമാണ്ട് രോഗബാധ സ്ഥിരീകരിച്ചത്

എല്ലാവർക്കും ഭ്രക്ഷ്ടണം ഉറപ്പുവരുത്തുന്നതിനുള്ള കമ്മ്യൂണിറ്റി കിച്ചനുകൾ ഏ ൃത്ദേശ സ്ഥാപനങ്ങൾ ഇന്നു തന്നെ ആരംഭിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു തോമസ് ഐസക് കൊറോണ പ്രതിസന്ധി നേരിടാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക പാക്കേജ് സ്വാഗതാർഹമാണെന്ന് ധനമന്ത്രി തോമസ് ഐസക്

കേരളത്തിലെ സാധാരണക്കാർക്കും ഈ പാക്കേജിന്റെ പ്രയോജനം ലഭിക്കും എന്നാൽ പല വിഷയങ്ങളിലും സംസ്ഥാനത്തെ കേന്ദ്രം അവഗണിക്കുകയാണെന്നും ശ്രീ തോമസ് ഐസക് അഭിപ്രായപ്പെട്ടു

വിദേശത്ത് നിന്ന് വന്ന് കാറന്റൈനിൽ കഴിയണമെന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തതിനാണ് ഇയാൾക്കെതിരെ കേസ് എടുത്തത് രോഗിയുടെ കെ എസ്

സി കണ്ടക്ടറായ മകൻ നിരീക്ഷണത്തിലാകുന്നതിനു മുൻപ് ജോലി ചെയ്ത ബസ്സുകളുടെ വിവരവും പുറത്തു വിട്ടിട്ടുണ്ട് രോഗിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കി വരുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു

വി എസ് ആശുപത്രി എറണാകുളം ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തു ജില്ലാ കളക്ടറുടെ നിർദേശപ്രകാരം സബ് കളക്ടർ സ്നേഹിൽകുമാർ സിങ്ങാണ് ഇതു സംബന്ധിച്ച് ഉത്തരവിട്ടത് കണയന്നൂർ തഹസിൽദാർ ബീന പി ആനന്ദിനാണ് ഏറ്റെടുക്കൽ ചുമതല തഹസിൽദാർ മുഹമ്മദ് സാബിർ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോ

ഹനീഷ് എന്നിവർ പ്രവർത്തനം ഏകോപിപ്പിക്കും

ഇതിൽ പകുതിയോളം ഷ്ട്ര്ക്ക് അവരുടെ ബാങ്ക് അക്കൌണ്ടുകൾ മുഖാന്തിരവും ബാക്കിയുള്ള്വർക്ക് നേരിട്ട് വീടുകളിൽ എത്തിക്കുകയുമാണ് ചെയ്യുന്നത്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ രവികുമാർ

സൊമാറ്റോയുമായി ചേർന്നാണ് ഓൺലൈൻ വഴി ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ സംവിധാനമൊരുക്കുന്നത് പ്രാരംഭ നടപടി എന്ന നിലയിലാണ് സപ്ലൈകോയുടെ ആസ്ഥാനമായ ഗാന്ധി നഗറിനു എട്ടുകിലോ മീറ്റർ പരിധിയിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുക

കാസർകോട് ജില്ലയിലെ ക്കൊറോ്ണ പ്രതിരോധ നടപടികളെക്കുറിച്ച് ആകാശവാണി പ്രതിനിധിച്ചു

ജനങ്ങൾ അവശ്യ സാധനങ്ങൾക്കായി അങ്ങിങ്ങ് പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചു വരുന്നുണ്ട് കൂടുതൽ വിവിരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

അൺ എയ്ഡഡ് സ്കൂൾ എ കൊറോണ വൈറസ് സംസ്്ഥാനത്ത് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ നിരീക്ഷണ കേന്ദ്രങ്ങൾക്കായി അൺ എയ്ഡഡ് സ്കൂളുകൾ വിട്ടുനൽകാൻ തയ്യാറാണെന്ന് അംഗീകൃത അൺ എയ്ഡഡ് സ്കൂളുകളുടെ സംഘടന സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു മുഴുവൻ സമയവുംവൈദ്യുതിയും വെള്ളവും ഉൾപ്പെടെ ലഭ്യമാകുന്ന മെച്ചപ്പെട്ട കെട്ടിടങ്ങളാണ് അൺ എയ്ഡഡ് സ്കൂളുകളുടേത്

ഈ അവസരത്തിൽ നിരീക്ഷണത്തിലുള്ള രോഗികളെ പാർപ്പിക്കാൻ ആവശ്യമുള്ളത്ര കെട്ടിടങ്ങൾ അൺ എയ്ഡഡ് സ്കൂളുകൾക്കുണ്ട് ഈ അടിയന്തിര ഘട്ടത്തെ അതിജീവിക്കാൻ ഇവ സർക്കാരിന് വിട്ട് നൽകാമെന്ന് സംഘടന അറിയിച്ചു സമൂഹ വ്യാപനം രാജ്യത്ത് സമൂഹ വ്യാപനം ഉണ്ടായതായുള്ള കൃത്യമായ തെളിവ് ലഭിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്

അവശ്യവസ്തുക്കളുടെ വിതരണം ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്

ആളുകൾ വീടുകളിൽ തന്നെ തങ്ങുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണിത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന എൻ

രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്

അമേരിക്കയിൽ മരണസംഖ്യ ആയിരം കവിഞ്ഞു

സ്വർണ്ണവിലയിൽ മാറ്റമില്ല

ഇതു കൂടാതെ തിരുവമ്പാടി സ്റ്റേഷന് പരിധിയിലുള്ള മുത്തപ്പൻ പുഴയിൽ നടത്തിയ റെയ്ഡിലും വാഷും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി എ ശ്രീനിവാസ് അറിയിച്ചു കോഴിക്കോട് കൺട്രോൾ റൂം പൊതുഗതാഗത സംവിധാനങ്ങൾ നിർത്തലാക്കിയ സാഹചര്യത്തിൽ അടിയന്തിര ഘട്ടങ്ങളിൽ വാഹന സൌകര്യം ഏർപ്പെടുത്തുന്നതിന് കോഴിക്കോട് ജില്ലയിൽ ട്രാൻപോർട്ട് കൺട്രോൾ റൂമുകൾ തുറന്നു

ഇത്തരം അന്തർ ജില്ലാ അന്തർ സംസ്ഥാന ചരക്കു വാഹനങ്ങൾക്ക് പാസ് നൽകാനും ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്